പാകിസ്ഥാന്റെ പിടിയിലായ കൃഇ്ത്യൻ വൈമാനികൻ അഭിനന്ദനെ നാളെ മോചിപ്പിക്കും മോചനം സമാധാന ശ്രമങ്ങളുടെ ഭാഗമെന്ന് പാക് പ്രധാനമന്ത്രി

സേനയുടെ ആത്മവീര്യം കെടുത്തുന്ന ഒരു പ്രവൃത്തിയും പാടില്ലെന്ന് പ്രധാനമ്ത്രി ്ന്രേന്ദ്രമോദി

ആദായ നികുതിയിട്ടിയി അടച്ച അധിക തുക നാളെ മുതൽ ബാങ്ക് അക്കൌണ്ട് വ്ഴി തിരിച്ചു നൽകും

സ്വാശ്രയ മെഡിക്കൽ കോളേജ് ഫീസ് സംബന്ധിച്ച് ജസ്റ്റിസ് രാജേന്ദ്രബാബു കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതി റദ്ദാക്കി

തർക്കത്തിലുളള തോട്ടങ്ങളുടെ ഭൂനികുതി ഗവൺമെന്റുമായി കൂടിയാലോചിച്ച് സ്വീകരിക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം

കണ്ണൂരിൽ നിന്ന് മസ്ക്കറ്റിലേക്ക് വിമാന സർവ്വീസ് ഇന്ന് രാത്രി മുതൽ ആരംഭിക്കും അഭിനന്ദൻ വർത്തമാൻ പാകിസ്ഥാന്റെ പിടിയിലായ ഇന്ത്യൻ വ്യോമസേന വൈമാനികൻ അഭിനന്ദൻ വർത്തമാനെ നാളെ മോചിപ്പിക്കും സമാധാന ശ്രമങ്ങളുടെ ഭാഗമായാണ് അഭിനന്ദിനെ മോചിപ്പിക്കുന്നതെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പാകിസ്ഥാൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അറിയിച്ചു കാശ്മീർ വിഷയത്തിൽ ചർച്ച ആവശ്യമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചതായും ഇമ്രാൻഖാൻ പാക് പാർലമെന്റിൽ അറിയിച്ചു നേരത്തെ പാകിസ്ഥാൻ പിടിയിലായ ഇന്ത്യൻ വൈമാനികൻ അഭിനന്ദൻ വർത്തമാനെ ഉടൻ വിട്ടുകിട്ടണമെന്ന് ഇന്ത്യ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു

ഇതിനായി നയതന്ത്ര ഇടപെടൽ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഉന്നത ഔദ്യോഗിക വ്യത്തങ്ങൾ വ്യക്തമാക്കി

ശ്രീനിവാസൻ

ഒരു കോടിയോളം ബി ജെ പി ബൂത്ത് പ്രവർത്തകരുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു ശ്രീ മോദി തീവ്രവാദ ആക്രമണങ്ങളിലൂടെ ശത്രു നമ്മെ അസ്ഥിരപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് നമ്മുടെ വളർച്ച തടയാൻ അവർ ആഗ്രഹിക്കുന്നു നമ്മൾ ഒന്നിച്ച് പൊരുതി ഒറ്റക്കെട്ടായി ജയിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

പാകിസ്ഥാന്റെ പിടിയിലായ ഇന്ത്യൻ വ്യോമസേനാ വൈമാനികൻ അഭിനന്ദനെ നിരൂപാധികം വിട്ടയയ്ക്കുമെന്ന പാകിസ്ഥാന്റെ തീരുമാനത്തിന് പിന്നാലെയാണ് സേനാ മേധാവികൾ രാത്രി ഏഴിന് മാധ്യമങ്ങളെ കാണുന്നത് ഇന്ത്യ പാക് അതിർത്തിയിൽ സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ വാർത്താസമ്മേളനത്തിന് പ്രത്യേക പ്രാധാന്യമാണുള്ളത്

ഇതിന് ബാങ്ക് അക്കൌണ്ടുകളുമായി പാൻ ബന്ധിപ്പിക്കേണ്ടത് നിർബന്ധമാണെന്നും ആദായനികുതി വകുപ്പ് ന്യൂഡൽഹിയിൽ അറിയിച്ചു

സ്വാശ്രയ ഫീസ് സ്വാശ്രയ മെഡിക്കൽ കോളെജ് ഫീസ് സംബന്ധിച്ച ജസ്റ്റിസ് രാജേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതി റദ്ദാക്കി

നേരത്തെ നിശ്ചയിച്ചത് താൽക്കാലിക ഫീസ് ആണെന്നും രണ്ട് മാസത്തിനകം പുതിയ ഫീസ് നിശ്ചയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു

കൊല്ലം കോട്ടയം കേടുക്കി പത്തനംതിട്ട ജില്ലകളിലെ കളക്ടർമാർക്കാണ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഇതു സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത് കൊല്ലം ജില്ലയിലെ രണ്ട് തോട്ടങ്ങളുടെ ഭൂനികുതി സ്വീകരിച്ചത് വിവാദമായ സാഹചര്യത്തിലാണ് മന്ത്രിയുടെ നിർദ്ദേശം

ഇവിടെ നിർമിച്ചിരുന്ന രണ്ട് ഷെഡുകളും പൊളിച്ചുനീക്കി

നീലക്കുറിഞ്ഞി അടക്കമുള്ള ചെടികളും മരങ്ങളും വെട്ടിമാറ്റിയ ശേഷം ഇവിടെ മറ്റു വിളകൾ കൃഷി ചെയ്തിരുന്നു

പ്രക്ഷ മാലിനൃം ചെറുതോണി മാലിനൃ സംസ്കരണം കർശനമായി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ നിയമങ്ങൾ സംബന്ധിച്ച് ഇടുക്കി ജില്ലയിലെ തദ്ദേശസ്ഥാപന മേധാവികൾക്ക് ഹരിതകേരളം മിഷനും കിലയും ചേർന്ന് പരിശീലനം നൽകി പഞ്ചായത്തീരാജ് പരിസ്ഥിതി സംരക്ഷണംഇന്ത്യൻ ശിക്ഷാ നിയമം എന്നിവ പ്രകാരം മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കു കഴിയും അടുത്തിടെ ജലസേചനവകുപ്പും കടുത്ത ശിക്ഷകൾ ഉൾപ്പെടുത്തി പുതിയ ജലസംരക്ഷണനിയമം നടപ്പാക്കിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി

തിരുവനന്തപുരത്തേക്കും തിരിച്ചും ഗോ എയർ ഉടൻ പ്സർവ്വീസ് ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു

നഗരത്തിനടുത്തുളള ജൂബിലി ഗ്രൌണ്ടിൽ ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം കോഴിക്കോട്ട് കുറ്റിയാടി സ്വദേശികൾക്കാണ് പരിക്കേറ്റത് പൂജാദ്രവൃങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന ഇവർ പൂക്കൾ ശേഖരിക്കുന്നതിനിടെയാണ് സ്ഫോടനം ഉണ്ടായതെന്ന് പോലീസ് അറിയിച്ചു

അട്ടപ്പാടി കുടിവെള്ള പ്രശ്നം അട്ടപ്പാടി മേഖലയിലെ കുടിവെള്ള പ്രശ്നം പരിഹാരിക്കുന്നതിനായി നടപ്പാക്കുന്ന അട്ടപ്പാടി സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഒന്നാംഘട്ട പ്രവർത്തനങ്ങൾ ഏഴുമാസത്തിനകം പൂർത്തീകരിക്കുമെന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞു പദ്ധതിയുടെ ഒന്നാംഘട്ട കെ നിർമാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിപാടി തൽസമയം വീക്ഷിക്കുകയും മത്സരാർത്ഥികളുമായി നേരിട്ട് സംവദിക്കുകയ്യും ചെയ്യും

ജൂനിയർ എ ഡി ജി പിക്ക് വിജിലൻസിന്റെ ചുമതല നൽകിയത് കേസുകൾ അട്ടിമറിക്കാനും ഗവൺമെന്റിന്റെ ആജ്ഞാനുവർത്തിയായി വിജിലൻസ് വകുപ്പിനെ മാറ്റാനുമാണെന്ന് ശ്രീ ചെന്നിത്തല പ്രസ്താവനയിൽ പറഞ്ഞു അതിനിടെ അനിൽകാന്തിനെ വിജിലൻസ് ഡയറക്ടറായി നിയമിച്ചു കൊണ്ടുളള ഉത്തരവിറങ്ങി വിജിലൻസ് മേധാവിയായിരുന്ന ബി എസ് മുഹമ്മദ് യാസിൻ ഇന്ന് വിരമിക്കുന്ന ഒഴിവിലാണ് അനിൽകാന്തിന്റെ നിയമനം

സഹകരണ ആഡിറ്റോറിയത്തിൽ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ഉദ്ഘാടനം ്ചെയ്യും

ജോസഫ് എം

സഭയുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന തിന് നിലവിൽ വ്യക്തമായ നിബന്ധനകളുണ്ട്

അതിനാൽ ഗവൺമെന്റ് നേതൃത്വത്തിൽ പുതിയ നിയന്ത്രണങ്ങൾ ആവശ്യമില്ലെന്നും ശ്രീ പി